പരിഗണിച്ച് എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തി

തെരഞ്ഞെടുപ്പിലേക്കുള്ള് പരസ്യ പ്രചാരണം ഇന്ന് സമാപിക്കും

പെട്ടെന്ന് മടങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായിവിജയൻ

വാർഷികാഘോഷം ഇന്ന് വിവിധ ജില്ലകളിൽ നടക്കും

ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ മിസോറം തെലങ്കാന സംസ്ഥിനങ്ങളിലാണ് നിയമസഭാ തെരെഞ്ഞെടുപ്പ് നടക്കുന്നിരു് ്തെരെഞ്ഞെടുപ്പിലെ ജയപരാജയ സാധ്യതകളെ കുറിച്ചുള്ള് പ്രവചനങ്ങൾ മാധ്യമങ്ങളിലൂടെയോ മറ്റോ പ്രസിദ്ധീകരിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്

ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സ്മർണാർത്ഥം പാരീസിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും വിശദവിവരങ്ങളുമായി രഞ്ജിത്ത്

സമാധാനമാണ് പുരോഗതിയിലേക്കുള്ള അടിസ്ഥാന മാർഗമെന്ന് ശ്രീ

സമാധാനത്തിന്റേയും അഹിംസയുടേയും മാർഗത്തിലൂടെയാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇടം നേടിയത് പരസ്പരാശ്രിതമായ സമൂഹത്തിന് പുരോഗതിയുണ്ടാകണമെങ്കിൽ മികച്ച രീതിയിലുള്ള ആശയവിനിമയം സാധ്യമാക്കേണ്ടതുണ്ട് ഫ്രാൻസിന്റെ പുരോഗതിക്ക് നിസ്തുലസേവം വഹിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിനന്ദിച്ചു സുതാര്യത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമഫലമാണ് നോട്ടുനിരോധനമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഉപരാഷ്ട്രപതി ഫ്രാൻസിലെ ഇന്ത്യാക്കാരോട് അഭ്യർത്ഥിച്ചു പാരീസിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമാധാന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും

ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന്റെ അദ്ധ്യക്ഷതയിൽ ഒന്നാംലോക മഹായുദ്ധത്തിന് വിരാമമിട്ടതിന്റെ ഓർമ്മ പുതുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സ്മ്മേളനത്തിലും ശ്രീ നായിഡു പങ്കെടുക്കും

ഈ മാസം രണ്ടാം തവണയാണ് പാചക വാ്തകത്തിന് വില വർധിപ്പിക്കുന്നത്

ബി ഐ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി ദയാനിധി മാരൻ സഹോദരൻ കലാനിധിമാരൻ സൺ ടി വി ജീവനക്കാർ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ അടക്കം ഏഴുപേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്

റിട്ടേണുകൾ കാലതാമസ്മില്ലാതെ മടക്കി നൽകുന്നതിനായി സേവനം ലഭ്യമാക്കുന്ന സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ധനമിന്ത്യാലയം ഐക്യരാഷ്ട്ര സംഘടനയോടും വിദ്ദേശ് നയതന്ത്രദൌത്യത്തിലേർപ്പെട്ടിരിക്കുന്നവരോടും ആവശ്യപ്പെട്ടു വിദേശ നയതന്ത്ര കാര്യാലയങ്ങൾക്കും എംബസികൾക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും അവരവരുടെ ജി

റ്റി റിട്ടേണുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി യു

എന്നിരുന്നാലും ഈ കാര്യാലയങ്ങളിൽ പലതും ജി

ടി റിട്ടേൺ ഫോറത്തിൽ സേവനം ലഭ്യമാക്കുന്ന യഥാർത്ഥ സ്ഥലം രേഖപ്പെടുത്തുന്നതിനുപകരം യു ഐ എൻ രജിസ്റ്റർ ചെയ്ത സ്ഥലം രേഖപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം

ഇന്നലെ ഉച്ചതിരിഞ്ഞ് പ്രദേശത്ത് സൈന്യം ജമ്മുകാശ്മീർ പോലീസ് സി ആർ പി എഫ് എന്നിവർ സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്നുള്ള രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു സംയുക്ത സേനയുടെ തെരച്ചിൽ കൊല്ലപ്പെട്ട ഭീകരൻ പാകിസ്ഥാൻ സ്വദേശിയായ അൻവറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പോലീസ് വൃക്താവ് അറിയിച്ചു

ടാങ്ദാർ മേഖ്ലയിൽ ഉണ്ടായ അതിക്രമത്തിൽ പാകിസ്ഥാൻ ശക്തമായ വെടിവെയ്പ് നടത്തുകയും മോർട്ടാർ ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തതായാണ് വിവരം ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ആൾനാശം ഉണ്ടായതായി റിപ്പോർട്ടില്ല

വിശദവിവരങ്ങളുമായി രഞ്ജിത്ത്

പിന്നീടാണ് ഇന്ത്യ തിരിച്ചടിച്ചത് വമ്പൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റുവീശിയ ന്യൂസിലാൻഡ് നിരയിൽ ഓപ്പണർ സൂസി ബെയ്റ്റ്സ് വിക്കറ്റ് കീപ്പർ കാറ്റി മാർട്ടിൻ എന്നിവർക്ക് മാത്രമാണ് തിളങ്ങാനായത് ഇന്ത്യയ്ക്കായി അരങ്ങേറ്റക്കാരി ദയാലൻ ഹേമലതയും പൂനം യാദവും മൂന്നുവീതം വിക്കറ്റെടുത്തു

കഴിഞ്ഞ ആഴ്ച അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഞ്ഞുവീഴ്ച പ്രത്യേക ദുരന്തമായി കണ്ട് നാശം നേരിട്ട കർഷകർക്ക് ദുരിതാശ്വാസം ലഭ്യമാക്കുകയാണ് ഉദ്ദേശ്യം ഇതിനായി സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് സംസ്ഥാന എക്സിക്യുട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യത്തോട് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ശ്രീബരിമലയുടെയും സന്നിധാനത്തിന്റെയും പവിത്രര്യിനില്നിർത്തുമെന്നും അതിന് കളങ്കം വരുത്തുന്നവർക്കെതിരെ ക്ർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമ്ത്ത് കൂട്ടിച്ചേർത്തു ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ദൈനംദിന വരുമാനം ഇതര ചെലവുകൾക്കായി ഗവൺമെന്റ് വിനിയോഗിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് ബോധപൂർവം ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തുന്ന വാഹനങ്ങൾക്ക് പൊലീസ് പാസ് നിർബന്ധമാക്കിയതായി റിപ്പോർട്ടുണ്ട് സ്വന്തം സ്ഥലത്തെ പൊലീസ് സ്റ്റേഷനിൽനിന്ന് പാസ് വാങ്ങിയാണു തീർത്ഥാടകർ ഇനി ശബരിമല യാത്ര ചെയ്യേണ്ടത്

വിളംബരഘോഷയാത്ര പൊതുസമ്മേളനം സാംസ്കാരിക സദസ്സ് നവോത്ഥാന ചരിത്രപ്രദർശനം കലാപരിപാടി തുടങ്ങിയ വിവിധ പരിപാടികൾ ഇതോടുനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥും ഇടുക്കി ജില്ലയിൽ വൈദ്യുതിമന്ത്രി എം

സാമൂഹ്യ മുന്നേറ്റങ്ങളെ എതിർക്കൂന്ന്വരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ്ണെന്ന് അദ്ദേഹം പറഞ്ഞു

സ്വന്തം ഭൂമിയിൽ പുനർനിർമാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യഗഡു നൽകാൻ ജില്ലാ കലക്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട്